കൌൺസിൽ യോഗത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രത്യേക ക്ഷണിതാവായി പങ്കെടുക്കും

കേരളത്തിൽ ലോക്ഡൌൺ ആരംഭിച്ചു തമിഴ്നാട്ടിലും കർണാടകയിലും മറ്റന്ന്റിൾമുതൽ ലോക്ഡൌൺ

ഡോക്ടർമാരുടെ സേവനം പ്രയോജനപ്പെടുത്താൻ കേന്ദ്ര സർക്കാർ തീരുമാനം

യോഗ്യത നേടി

യോഗത്തിൽ പോർച്ചുഗൽ പ്രധാനമന്ത്രി അന്റോണിയോ കോസ്റ്റ അധ്യക്ഷത വഹിക്കും കോവിഡ് മഹാമാരി ആരോഗ്യസുരക്ഷ സഹകരണം സുസ്ഥിര വളർച്ച ഇന്ത്യ യൂറോപ്യൻ യൂണിയൻ സാമ്പത്തിക പങ്കാളിത്തം പരസ്പര താൽപര്യമുള്ള പ്രാദേശിക ആഗോള വിഷയങ്ങൾ എന്നിവ യോഗം ചർച്ച ചെയ്യും ലോകത്തെ രണ്ട് വലിയ ജനാധിപതൃ സംവിധാനങ്ങൾ തമ്മിലുള്ള ചർച്ച അന്താരാഷ്ട്ര വ്യാപാരം നിക്ഷേപം എന്നിവ പ്രോത്സാഹ്ലിപ്പിക്കുമെന്ന് യോഗത്തിന് മുന്നോടിയായി ശ്രീ നരേന്ദ്രമോദിയുട്ടി അന്റോണിയ കോസ്റ്റയും സംയുക്തമായി പുറപ്പെടുവിച്ച പ്രസ്താവ്നയിൽ പറഞ്ഞു ഡിജിറ്റൽ ഇടപാടുകൾ കണക്ടിവിറ്റി കാലാവസ്ഥ തുടങ്ങി തന്ത്രപ്രധാനമായ നിരവധി മേഖലകളിൽ വിക്സനത്തിന് ചർച്ച വഴിതെളിക്കുമെന്നും ഇരുനേതാക്കളും അഭിപ്രിയപ്പെട്ടു

കോവിഡ് വാക്സിനുകളും മെഡിക്കൽ ഉൽപന്നങ്ങളും ആഗോളതലത്തിൽ യഥാസമയം ലഭ്യമാക്കുന്നതിനും മരുന്നുകളുടെ ലഭൃത സമയബന്ധിതമായി വർദ്ധിപ്പിക്കുന്നതിനും നടപടി സഹായകമാകും അന്താരാഷ്ട്ര സമാധാനവും സൂരക്ഷയും സംബന്ധിച്ച ഐക്യരാഷ്ട്രസഭയുടെ ഉന്നതതല യോഗത്തിൽ സംസാരിക്കവേ വിദേശകാര്യ സെക്രട്ടറി വർധൻ ഹർഷ് ശ്രിംഗ്ളയാണ് ഇക്കാര്യം വ്യക്തമാക്കിയത്

പരിശോധനയിൽ എല്ലാവരും കോവിഡ്ഡ് നെഗറ്റീവ് ആണെന്ന് തെളിഞ്ഞതായി അദ്ദേഹം ട്വിറ്ററിൽ അറിയിച്ചു

കർശന നിയന്ത്രണങ്ങളാണ് സംസ്ഥാനത്ത് ഏർപ്പെടുത്തിയിരിക്കുന്നത്

പാസിന് അപേക്ഷിക്കാനുള്ള ഓൺലൈൻ സംവിധാനം ഇന്ന് വൈകിട്ടോടെ നിലവിൽ വരും അയൽ സംസ്ഥാനങ്ങളായ തമിഴ്നാട്ടിലും കർണാടകയിലും മറ്റന്നാൾ മുതൽ സമ്പൂർണ ലോക്ക്ഡൌൺ പ്രഖ്യാപിച്ചിട്ടുണ്ട്

കേരളത്തിന് പുറത്തുനിന്ന് വരുന്നവർ കോവിഡ് ജാഗ്രതാപ്രോർട്ടലിൽ രജിസ്റ്റർ ചെയ്യണമെന്നും മുഖ്യമന്ത്രി നിർദേശിച്ചു ശിട്ടുക്ടകൾ തുറക്കരുതെന്നും ആഹാരം കഴിക്കുന്നത് വീട്ടിനുള്ളിൽ ് നിന്ന് മാത്രമാക്കണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു

കൂടാതെ പത്തോളം സംസ്ഥാനങ്ങളിലും കേന്ദ്രഭരണ പ്രദേശങ്ങളിലും രാത്രികാല വാരാന്ത്യ കർഫ്യൂ ഏർപ്പെടുത്തിയിട്ടുണ്ട്

പരശുറാം മലബാർ മാവേലി അമൃത എന്നീ ട്രെയിനുകൾ മാത്രമാണിപ്പോൾ സർവീസ് നടത്തുന്നത്

മുൻകരുതലുകൾ നിരീക്ഷണം നിയന്ത്രണം ചികിത്സ പരിശോധന എന്നിവ സംബന്ധിച്ച മാർഗ്ഗനിർദ്ദേശങ്ങൾ ശരിയായി പാലിക്കണമെന്ന് അദ്ദേഹം നിദ്ദേശിച്ചു

ഇതോടെ കോവിഡ് പ്രതിരോധത്തിന് യോഗ്യതയുള്ള എട്ട് ലക്ഷം ആയുഷ് പ്രൊഫഷണലുകളുടെ സേവനം ലഭ്യമാകുമെന്ന് ആയുഷ് മന്ത്രാലയം അറിയിച്ചു

ഏതൊക്കെ മേഖലകളിലാണ് ആക്രമണം നടന്നതെന്ന് സത്യവാങ്മൂലത്തിൽ വൃക്തമാക്കണമെന്ന് അഞ്ചംഗ ബഞ്ച് നിർദേശിച്ചു അക്രമം നിയന്ത്രിക്കാൻ സംസ്ഥാന സർക്കാർ കൈക്കൊണ്ട നടപടികളെക്കുറിച്ച് വൃക്തമാക്കാനും നിർദേശമുണ്ട്

ഇസ്രയേലിന്റെ പിന്തുണ ഇന്ത്യ വളരെയധികഠ വിലമതിക്കുന്നുവെന്നും നടപടി രാജ്യത്തിന്റെ ഓക്സിജൻ ശേഷി വർദ്ധിപ്പിക്കുമെന്നും ഇന്തൃ പറഞ്ഞു